കോവിഡ് സാഹചര്യത്തിൽ ഈദ് നമസ്കാരം വീടുകളിൽ ചെറിയ പെരുന്നാൾ പ്രമാണിച്ച് സംസ്ഥാനത്ത് ഞായർ ലോക്ഡൌണിൽ ഇളവുകൾ പ്രഖ്യാപിച്ചു

വാർത്തകൾ വിശദമായി കേരളത്തിലേക്ക് പ്രത്യേക ട്രെയിനുകൾ അയക്കുമ്പോൾ സംസ്ഥാന ഗവൺമെന്റിനെ വിവരം മുൻകൂട്ടി അറിയിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു യാത്രക്കാരുടെ പട്ടികയും വിശദാംശങ്ങളും നേരത്തെ ലഭ്യമാക്കണമെന്നും റെയിൽവെ മന്ത്രി പീയുഷ് ഗോയലിന് അയച്ച ഇ മെയിൽ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു വെള്ളിയാഴ്ച്ച മുംബൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട പ്രത്യേക ട്രെയിനിന്റെ കാര്യം ഗവൺമെന്റിനെ റെയിൽവെ അറിയിച്ചിരുന്നില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു രുമ പ്രതിപക്ഷത്തെ തുടർന്നും വിശ്വാസത്തിലെടുത്തും സഹകരിപ്പിച്ചും മുന്നോട്ട് പോകാനാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു നാടിന്റെ എല്ലാ നല്ല കാര്യങ്ങൾക്കും പ്രതിപക്ഷം ഒപ്പം നിൽക്കുമെന്നാണ് പ്രതീക്ഷ അവരുമായി അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഗവൺമെന്റിന് ഒരു പ്രയാസവുമില്ലെന്ന് പ്രതിവാര സംവാദ പരിപാടിയായ നാം മുന്നോട്ടിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി

കോവിഡ് സാഹചര്യത്തിൽ റംസാനിലെ ആരാധനകളും പ്രാർത്ഥനകളും വീടുകളിൽ തന്നെയാണ് വിശ്വാസികൾ പൂർത്തിയാക്കിയത് ഇന്നത്തെ ഈദ് നമസ്കാരവും വീടുകളിൽ തന്നെയായിരിക്കും പള്ളികളിലും പൊതുസ്ഥലങ്ങളിലും ഇൌദ്ഗാഹുകളും നമസ്കാരങ്ങളും ഉണ്ടാവില്ല ഗൾഫ് രാജ്യങ്ങളിലും ഇന്നാണ് പെരുന്നാൾ ഉത്തരേന്ത്യയിലും തമിഴ്നാട് മഹാരാഷ്ട്ര കർണാടക ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ നാളെയായിരിക്കും ചെറിയ പെരുന്നാൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഉൾപ്പടെ പ്രമുഖർ ഈദ് ആശംസകൾ നേർന്നു രുഭ ചെറിയ പെരുന്നാൾ പ്രമാണിച്ച് ഇന്ന് സംസ്ഥാനത്ത് ഞായർ ലോക്ഡൌണിൽ ഇളവുകൾ പ്രഖ്യാപിച്ചു ബേക്കറി തുണിക്കടകൾ ഫാൻസി സ്റ്റോറുകൾ ചെരുപ്പ് കടകൾ എന്നിവ രാവിലെ ഏഴു മുതൽ വൈകീട്ട് ഏഴുവരെ തുറക്കാം

ബന്ധുവീടുകളിലേക്ക് വാഹനങ്ങളിൽ അന്തർ ജില്ലാ യാത്രാകൾ നടത്താനും അനുമതിയുണ്ട് എന്നാൽ സാമൂഹ്യ അകലം പാലിക്കൽ മുഖാവരണം എന്നിവ നിർബന്ധമായി പാലിക്കണമെന്ന് നിർദേശിച്ചു

ആലപ്പുഴയിൽ അഞ്ച് പേർക്കും കോഴിക്കോട് കാസർകോട് ജില്ലകളിൽ നാലുപേർക്ക് വീതവും കൊല്ലത്ത് മൂന്ന് പേർക്കും കോട്ടയത്ത് രണ്ട് പേർക്കും വയനാട്ടിൽ ഒരാൾക്കുമാണ് രോഗം

രുമ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പാലക്കാട് ജില്ലയിലെ ഏഴ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ ആക്കുമെന്ന് മന്ത്രി എ

സാമ്പിൾ പരിശോധനകൾ വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു

വിദേശത്ത് നിന്നും മുംബൈയിൽ നിന്നും എത്തിയ രണ്ട് പേർക്ക് വീതമാണ് രോഗം സ്ഥിരീകരിച്ചത്

തലശേരി ജനറൽ ആശുപത്രിയിലെ രണ്ട് ജീവനക്കാരികൾക്കും ചെന്നൈയിൽ നിന്നെത്തിയ ഒരാൾക്കും ഡൽഹിയിൽ നിന്നെത്തിയ മുംബൈയിലെ സ്വകാര്യ ആശുപത്രി നഴ്സിനുമാണ് രോഗം ബാധിച്ചത്

ആകാശവാണി പ്രതിനിധി പി ജഗന്നിവാസൻ

യാത്രക്കാരെ പരിശോധനയ്ക്ക് ശേഷം ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലേക്കും വീടുകളിലേക്കും അയച്ചു രുമ വന്ദേഭാരത് മിഷന്റെ ഭാഗമായി അബുദാബിയിൽ നിന്ന് പ്രവാസികളുമായി രണ്ടാമത്തെ വിമാനം കണ്ണൂരിൽ എത്തി

ഇത്തരമൊരു നിർദേശം പരിഗണനയിലില്ല

രുദ സംസ്ഥാനത്ത് മറ്റന്നാൾ ആരംഭിക്കുന്ന എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകൾ എല്ലാ വിദ്യാർത്ഥികളും എഴുതുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് അധ്യാപകരുടെ ചുമതലയാണെന്ന് മന്ത്രി പ്രൊഫ

പരീക്ഷാ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി വീഡിയോ കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി രുര മഴക്കാലം നേരിടാൻ ദുരന്തങ്ങൾക്കവസരം കൊടുക്കാത്ത ക്രമീകരണങ്ങൾ സജ്ജമാക്കണമെന്ന് മന്ത്രി ടി

മുൻകാല അനുഭവങ്ങൾ പരിശോധിച്ച് ദുരന്തസാധ്യതാ പ്രദേശങ്ങൾ മുൻകൂട്ടി കണ്ടെത്തണം

ഇതിനാവശ്യമായ എമർജെൻസ് റസ്പോൺസ് ടീമിനെ തയാറാക്കണമെന്നും അദ്ദേഹം നിർദേശിച്ചു